അന്തർ ജില്ലാ ബസ് സർവ്വീസുകൾ പരിമിത തോതിൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി

സുനിൽകുമാർ

സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്

ഇവിടങ്ങളിൽ മെഡിക്കൽ ആവശ്യങ്ങൾക്കും ബന്ധുക്കളുടെ മരണാനന്തര ചടങ്ങുകൾക്കും മാത്രമായിരിക്കും അനുമതി ഇതിനായി പൊലീസ് സ്റ്റേഷനിൽ നിന്ന് പാസ് വാങ്ങണം

അന്തർജില്ലാ ബസ് സർവീസുകൾ പരിമിത തോതിൽ ആരംഭിക്കുമെന്നും തൊട്ടടുത്ത ജില്ലയിലേക്ക് മാത്രമായിരിക്കും സർവീസ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഓട്ടോറിക്ഷകളിൽ ഡ്രൈവർക്ക് പുറമെ രണ്ടു യാത്രക്കാർക്ക് അനുമതി നൽകും ആരാധനാലയങ്ങൾ ഹോട്ടലുകൾ തുടങ്ങിയവ തുറക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന നിർദേശം കേന്ദ്രത്തെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജുലൈയിലോ അതിനു ശേഷമോ തുറന്നാൽ മതിയെന്നാണ് തീരുമാനമെന്നും ഇക്കാര്യം കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇതുവരെ കോവിഡ് സമൂഹ വ്യാപനത്തിലേക്ക് കടന്നിട്ടില്ലെന്ന് മന്ത്രി ത്യശൂരിൽ അറിയിച്ചു

തൃശൂരിൽ ഒൻപതും കൊല്ലത്ത് അഞ്ചും പത്തനംതിട്ട നാലും പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ മൂന്ന് പേർക്കാണ് കോവിഡ് ബാധ ആലപ്പുഴ പാലക്കാട് ജില്ലകളിൽ രണ്ടുപേർക്കും ഇടുക്കി ജില്ലയിൽ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചു

ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും ഒരു എയർ ഇന്ത്യ ജീവനക്കാരിക്കും രോഗബാധയുണ്ടായി

അബുദാബിയിൽ നിന്ന് തിരിച്ചെത്തിയ ചാവക്കാട് ഇരിങ്ങാലക്കുട കാറളം തൃക്കൂർ സ്വദേശികൾക്കും ദോഹയിൽ നിന്ന് തിരിച്ചെത്തിയ കുന്നംകുളം മതിലകം പുന്നയൂർക്കുളം സ്വദേശികൾക്കും കുവൈറ്റിൽ നിന്ന് തിരിച്ചെത്തിയ കുന്നംകുളം സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ദേദ എറണാകുളം ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച മൂന്ന് പേരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരിയും ഉൾപ്പെടുന്നു

രേര പാലക്കാട് ജില്ലയിൽ മൈസൂരിൽ നിന്നും വന്ന പെരുമാട്ടി കന്നിമാരി സ്വദേശിക്കും ജില്ലാ ആശുപത്രിയിലെ ഒരു ആരോഗ്യപ്രവർത്തകക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്

ദേദ ഇടുക്കി ജില്ലയിൽ ഡൽഹിയിൽ നിന്നെത്തിയ നഴ്സിനാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

ഇന്നലെ ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല

ദേദ കണ്ണൂർ ജില്ലയിൽ ഇന്നലെ ഒരാൾക്ക് കൂടി കോവിഡ് ഭേദമായി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചിറക്കൽ സ്വദേശിനിയാണ് വീട്ടിലേക്ക് മടങ്ങിയത്

രുര കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശി രോഗമുക്തി നേടി

ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സൌകര്യമില്ലാത്ത കുട്ടികൾക്കായി ഗവൺമെന്റ് അയൽപക്ക പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അയൽപ്പക്ക പഠന കേന്ദ്രങ്ങൾ കെ

എസ് എഫ്

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം സംഭാവന നൽകിയതിൽ നിന്നാണ് ഇതിനുള്ള പണം കണ്ടെത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു രമേ വയനാട് ജില്ലയിലെ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പഠന സൌകര്യങ്ങൾ ഒരുക്കി

ഓണിവയൽ ഫ്ളാറ്റിൽ ഒരുക്കിയ പഠനമുറി ജില്ലാ കലക്ടർ ഡോ അദീല അബ്ദുള്ള സന്ദർശിച്ചു

രുമ കേരള ബാങ്കിന്റെ ആസ്ഥാന ഓഫീസ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാർക്കും കർഷകർക്കും പ്രയോജനകരമായിരിക്കും കേരള ബാങ്ക് എന്നും എല്ലാ ആധുനിക സംവിധാനങ്ങളും കേരള ബാങ്കിൽ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു

തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങളിൽ മേഖലാ ഓഫീസുകളും നിലവിൽ വന്നിട്ടുണ്ട് രണ്ട് ജില്ലകൾക്ക് ഒന്നെന്ന നിലയിലാണ് മേഖലാ ഓഫീസ്

രാവിലെ വടക്കൻ ദിശയിലേക്ക് പോകുന്ന ചുഴലിക്കാറ്റ് നാളെ ഉച്ചകഴിഞ്ഞ് മഹാരാഷ്ട്രക്ക് വടക്കും ഗുജറാത്തിന് തെക്കുമായി തീരം കടക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ആഭ്യന്തര മന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ദുരന്ത നിവാരണ അതോറിറ്റി ദേശീയ ദുരന്ത നിവാരണ സേന കാലാവസ്ഥാ വകുപ്പ് എന്നിവയിലെ ഉയർന്ന ഉദ്യോസ്ഥരുമായി തയാറെടുപ്പുകൾ ചർച്ച അദ്ദേഹം ഗുജറാത്ത് മഹാരാഷ്ട്ര ചെയതു

കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ സഹായവും അദ്ദേഹം ഉറപ്പു നൽകി രുമ സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി കോഴിക്കോട് ജില്ലയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ കണക്കിലെടുത്ത് കൊല്ലം എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

മത്സ്യതൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും കൊച്ചി കണ്ണൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കും ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്കും ഇന്ന് വിമാനമുണ്ടാകും